ബാലൻ ഇൻട്രോ പൌരത്വ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ഗവൺമെന്റ് സുപ്രീംകോടതിയെ സമീപിച്ചത് ചട്ടങ്ങൾ പ്ടാലിച്ചാണെന്ന് മന്ത്രി എ

ഇക്കാര്യത്തിൽ ഗവർണറുടെ അനുമതി ആവശ്യമില്ല നിയമവിദഗ്ദ്ധരുമായി ആലോചിച്ച് ഗവൺമെന്റ് മറുപടി നൽകുമെന്നും മന്ത്രി എ